സമാധാനത്തിനും അഭിവൃദ്ധിക്കും ആഗോള ഐകൃം അനിവാരൃമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഖാരിഫ് സീസണിൽ നെബ്സ് സ്ംഭരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി കേന്ദ്ര മന്ത്രി പിയൂഷ് ഗോയൽ

കേരളത്തിൽ കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ പത്ത് ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി

ഡൽഹി ക്യാപിറ്റൽസ് മുബൈ ഇന്ത്യൻസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും

ഇന്ന് രാവിലെ ഗുജറാത്തിലെ കെവാഡിയയിൽ നടന്ന ഏക്താ ദിവാസ് പരേഡിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ലോക സമാധാനത്തിനും അഭിവൃദ്ധിക്കും ആഗോള ഐക്യം അനിവാര്യമാണെന്ന് വ്യക്തമാക്കി

ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ചില രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം ഭീകരാക്രമണത്തെ ദുരുപയോഗം ചെയ്തതായി വിമർശിച്ചു തടസ്സങ്ങൾ നീങ്ങി ജമ്മു കശ്മീർ വികസനത്തിലേക്ക് മുന്നേറുന്നതായും സമാധാന ഉടമ്പടിക്ക് ശേഷം വടക്കുകിഴക്കൻ മേഖല വികസന പാതയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കർഷകരുടെയും തൊഴിലാളികളുടെയും ദരിദ്രരുടെയും ഉന്നമനത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും ശ്രീ മോദി വ്യക്തമാക്കി പ്രതിരോധ മേഖലയിൽ സാശ്രയത്തിലേക്കാണ് രാഷ്ട്രം നീങ്ങുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുൻനിര കൊറോണ യോദ്ധാക്കളെയും മഹാമാരിക്കെതിരായ പോരാട്ടത്തെയും അദ്ദേഹം പ്രശംസിച്ചു രാഷ്ട്രീയ ഏക്ത ദിവാസ് പരേഡിന് സാക്ഷ്യം വഹിച്ച പ്രധാനമന്ത്രി ഏകതാ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു

രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡത്ക്കും വേണ്ടി സർവവും സമർപ്പിച്ച നേതാവാണ് പട്ടേൽ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോഡി ഇന്ദിരാ ഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു

ഭോജ്പൂരി ഗായകരും സിനിമാ താരങ്ങളുമുൾപ്പെടെ നിരവധി താരപ്രചാരകരെ അണിനിരത്തി വിവിധ പാർട്ടികൾ പ്രചാരണം നടത്തിവരികയാണ്

പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്നത് ആ രാജ്യത്തിന്റ ഒരു മന്ത്രി തന്നെ തുറന്നു സമ്മതിച്ചു കഴിഞ്ഞു

സത്യം പുറത്ത് വന്നതോടെ അവർക്ക് നിശ്ശബ്ദരാകേണ്ടി വന്നുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഐയുടേയും സംസ്ഥാന ഏജൻസികളുടേയും സഹായത്തോടെയാണ് ഈ റെക്കോർഡ് നേട്ടം കൈവരിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്

പരിശോധിക്കുക കണ്ടെത്തുക ചികിത്സിക്കുക എന്ന ഇന്ത്യയുളടി ്ന്ന്യം രോഗമുക്തി നിരക്ക് വർധിക്കാനും മരണനിരക്ക് കുറിക്കാനും സഹായിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി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

നീട്ടിയിരിക്കുന്നത്

ഇക്കാര്യം ആവശ്യ പ്പെട്ട് ഇ

തിങ്കളാഴ്ച കോടതി അപേക്ഷ പരിഗണിക്കും

എല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ ഏഴു വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇതോടെ രാജസ്ഥാൻ പ്പേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി